ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ ഉല്പാദനം ഇറക്കുമതി വിപണനം എന്നിവ നിരോധിക്കുന്നതിനുള്ള ഓർഡ്ടിനൻസിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

ഝാർഖണ്ഡിനെ നക്സൽവാദ ഭീഷണിയിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി

എല്ലാത്തരം ഇലക്ട്രോണിക് നിക്കോട്ടിൻ സംവിധാനങ്ങൾ ഇ ഹുക്ക പോലുള്ള ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും ആദ്യത്തെ തവണ ഇ സിഗരറ്റ് ഉപയോഗിക്കുന്ന കുറ്റത്തിന് ഒരു വർഷം പരമാവധി തടവ് ശിക്ഷയായും പരമാവധി പിഴയായി ഒരു ലക്ഷം രൂപയും ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യുന്നു

ഇ സിഗരറ്റുകൾ സൂക്ഷിക്കുന്നതും കുറ്റകരമാണ്

ഓർഡിനൻസ് പ്രാബലൃത്തിൽ വരുന്ന ദിവസം നിലവിൽ ഇ സിഗരറ്റുകളുടെ സ്റ്റോക്കുള്ള ഉടമകൾ അവ സ്വമേധയാ വെളിപ്പെടുത്തി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ സ്റ്റോക്ക് കെട്ടി വയ്ക്കേണ്ടതാണ് ഓർഡിനൻസ് പ്രകാരം നിയമപരമായ നടപടി കൈക്കൊള്ളാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പോലീസ്സബ് ഇൻസ്പെക്ടറാണ് ന്യൂസ് ഡസ്ക് ആകാശവാണി

നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗ്ദ്ധണ്മെന്റ് ദിവസത്തെ വേതനം ബോണസായി നല്കുന്നത്

മധ്യസ്ഥ ശ്രമത്തിലൂടെ തർക്ക പരിഹാരം സാധ്യമാകുമെങ്കിൽ പരാതിക്കാർക്ക് അതിനും ശ്രമിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു

തങ്ങളുടെ വാദം പൂർത്തിയാക്കുന്നതിനുള്ള ഏകദേശ സമയം കോടതിയെ അറിയിക്കാൻ ഇരു വിഭാഗങ്ങളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

ക്ഷേന്ദ്രത്തിലും സംസ്ഥാനത്തും ബിജെപി ഗവണ്മെന്റ് നടത്തുന്നൂ പ്പികസന പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്നും അഭ്ദേഹം പറഞ്ഞു ജാമാത്രയിൽ ജോഹർജൻ ആശിർവാദ് യ്ാത്രയ്ക്ക് തുടക്കം കുറിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു് അദ്ദേഹം

നരേന്ദ്രമോദി ഗവണ്മെന്റ് നടത്തിയ ക്ഷേമപ്രവർത്തിനുങ്ങൾ വിശദീകരിച്ച അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അവസരം നല്കണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടു

ജി കണക്ഷൻ നല്കിയതായും അദ്ദേഹം പറഞ്ഞു

രണ്ട് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്

ബോസ്നിയ ബ്രസീൽ ഇക്വഡോർ കസാഖ്സ്ഥാൻ ലിത്വാനിയ നോർത്ത് മാസിഡോണിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് സ്പീഡ് പോസ്റ്റ് സംവിധാനം വ്യാപിപ്പിക്കുന്നത്

ശിവസേനയുടെ ഈ ആവശ്യ്ത്തെ ബിജെപിയും എൻ

മുംബെയ്യിൽ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ ് നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ ശിവസേന നേതാവും രാജ്യസഭാ എം

സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത്

പ്രധാനമന്ത്രിക്ക് കുർത്തയും മധുര പലഹാരങ്ങളും മമതാബാനർജി സമ്മാനിച്ചു

ഇത് സംബന്ധിത്ത തീരുമാനം നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡവലപ്മെന്റ് ആന്റ ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് സംസ്ഥാന ഗവണ്മെന്റിനെ അറിയിച്ചു

ഇലക്ട്രോണിക്സ് ഭക്ഷ്യസംസ്കരണം കൃഷിയ ധിഷ്ഠിത വൃവസായങ്ങൾ ഐടി പരമ്പരാഗത വൃവസായങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ബഹുഉൽപന്ന ക്ലസ്റ്ററാണ് കേരളത്തിൽ വിക സിപ്പിക്കപ്പെടുക സംസ്ഥാന ഗവണ്മെന്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമാണിതെന്ന് മുഖ്യമന്ത്രിയ്കുടെ ഓഫീസ് അറിയിച്ചു

ന്യൂഡൽഹിയിൽ ചീഫ് സെക്രട്ടറിമാരുടെട്ടിയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കവെ മന്ത്രി ഡോ

സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും ഭരണം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് കേന്ദ്രഗവൺമെന്റിന്റെ എല്ലാ സഹകരണവും ഏകോപനവും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു

വരാൻ പോകുന്ന ബ്ലോക്ക് ഡെവലപ്മെന്റ് കൌൺസിൽ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ചീഫ് സെക്രട്ടറി അവലോകനം ചെയ്തു

വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റുംശ്ലേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഫിൻലാന്റ് സന്ദർശനമാണ്ീത് സന്ദർശന വേളയിൽ ഫിൻലാന്റ് വിദേശകാര്യമന്ത്രി ഫ്ട്രെക്കാ ഹാവിസ്റ്റോയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും ഫിൻലാന്റ് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും അദ്ദേഹ്ം സ്ന്ദർശിക്കും

ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്

വെള്ളപ്പൊക്കത്താൽ മൽവ നിമാർ പ്രദേശത്തെ കാർഷിക വിളകൾ പൂർണ്ണമായും നശിച്ചു സിന്ധ് നദിക്കു സമീപത്തെ നിരവധി ഗ്രാമങ്ങളിൽ പ്രളയത്തിന് സമാനമായ അവസ്ഥയാണ് ഉള്ളത്

ഇന്ന് അഞ്ച് മൃതദ്ദേഹം കൂടി കണ്ടെടുത്തു കാണാതായവർക്കായുള്ള തെരിച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിനോദൃസ്ഞ്ചാ്രികളുമായി പോകുകയായിരുന്ന സ്വകാര്യ ബോട്ട് നദിയിൽ മറ്റിഞ്ഞത്

ധരംശാലയിൽ നടക്കേണ്ടിയിരുന്ന ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു